കോർപ്പറേഷനിൽ പ്രതിസന്ധി തുടരുന്നു

ൾ ൽ ൾ എംപാനൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കാൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു

വിധി നടപ്പാക്കാൻ സാവകാശം ലഭിച്ചില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് വിശദീകരിച്ചു എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെത്തുടർന്ന് കെ

സിയിലുണ്ടായ പ്രതിസന്ധി തുടരുന്നു

ഹൈക്കോടതി വിധി അനു സരിച്ച് പി

സി അഡ്രൈസ് ചെയ്ത പുതിയ കണ്ടക്ടർമാർ ഇന്ന് ചുമതലയേൽക്കും

കെഎസ്ആർടിസിയിൽ പുതുതായി നിയമനം ലഭിക്കുന്ന വർക്ക് ഒരു മാസത്തെ താത്കാലിക കണ്ടക്ടർ പാസ് നൽകുമെന്ന് എംഡി ട്ടോമിൻ തച്ചങ്കരി പറഞ്ഞു

കെഎസ്ആർടിസി യിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

പി എസ്സി വഴി ആവശ്യ മായ ജീവനക്കാരെ കിട്ടിയില്ലെങ്കിൽ നിയമം അനുവദിക്കുമെങ്കിൽ മാത്രം എം പാനലുകാരെ കോർപ്പറേഷന് ഉപയോഗിക്കാമെന്ന് കോടതി പറഞ്ഞു പിരിച്ചു വിട്ട നടപടിക്കെതിരെ എം പാനൽ ജീവനക്കാർ നൽകിയ ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതി ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് വിശുദമായ വാദം കേൾക്കാൻ ഹർജി നാളത്തേക്ക് മാറ്റി ഹർത്താലിനെ പ്രതിരോധിക്കാൻ പ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിനിധികളുടെയും ബസുടമകളുടെയും യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് ചേരും

ഹർത്താൽ പ്രഖ്യാപനമുണ്ടായാലും പതിവ് പോലെ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുകയാണ് ലക്ഷ്യം എൻ എസ് എസുമായി ഗവൺമെന്റിന് പ്രശ്നങ്ങളൊന്നുമി ല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വൃക്തമാക്കി എൻ എസ് എസിനെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടുന്നതിനെയാണ് വിമർശിക്കുന്നത് വനിതാ മതിലിനായി ഗവൺമെന്റ് സംവിധാനം ദുരുപയോഗം ചെയ്യില്ലെന്നും വനിതാമതിലിൽ ക്രിസ്ത്യൻ മുസ്തിം വനിതകൾ പങ്കെടുക്കുമെന്നും കടകംപള്ളി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാസുരേന്ദ്രനാണ് നിരാഹാരമിരിക്കുന്നത് പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡണ്ട് സി കെ പത്മനാഭന്റെ ആരോഗൃനില മോശമായതിനെ തുടർന്ന് അദ്ദേ ഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയി രുന്നു യാക്കോബായ സഭയുടെ പള്ളിയും സ്വത്തും ആർക്കും വിട്ടു കൊടുക്കില്ലെന്ന് സഭയുടെ പരമാധ്യക്ഷൻ ബ്സേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കാ ബാവ കോതമംഗലത്ത് വൃക്ത മാക്കി പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്ക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോ്തമംഗലം മാർത്തോമ്മ ചെറിയ പള്ളിയിൽ ഓർത്തഡോക്സ് വൈദികൻ തോമസ് പോൾ റമ്പാൻ ഹൈക്കോടതി ഉത്തരവുമായി പ്രാർത്ഥനയ്ക്ക് എത്തിയതിനെ തുടർന്ന് ഇന്നു രാവിലെ പള്ളിയിൽ സംഘർഷ മുണ്ടായി യാക്കോബായ വിഭാഗക്കാർ അദ്ദേഹത്തെ തടഞ്ഞ തിനെ തുടർന്നാണ് സംഘർഷം രൂപപ്പെട്ടത്

നിലവിൽ യാക്കോബായ വിഭാഗമാണ് പള്ളി കൈവശം വെച്ചി രിക്കുന്നത്

രാജ്യസഭ ഇന്നത്തേക്കും ലോക്സഭ ഉച്ചവരെയും നിർത്തി വെച്ചി രിക്കുകയാണ് രാജ്യസഭ ചേർന്നയുടൻ തന്നെ അണ്ണാ ഡി എം കെയുംഡി എം കെ യും കാവേരി നദിയിൽ കർണാടക അണ ക്കെട്ട് നിർമ്മിക്കുന്നതിനെതിരെ മുദ്രാവാകൃം വിളിയുമായി സഭ യുടെ നടുത്തളത്തിലിറങ്ങി അതേസമയം തന്നെ കോൺഗ്രസ് അംഗങ്ങളും റഫേൽ വിഷയം സംയുക്ത പാർല്ലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശൃപ്പെട്ട് മുദ്രാവാകൃം വിളിച്ചു ഇതേതു ടർന്ന് ബി ജെ പി അംഗങ്ങൾ റഫേലിൽ തെറ്റിദ്ധാരണപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മാപ്പു പറ യണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാകൃം മുഴക്കി സഭ നിയന്ത്രിക്കാ നാവാതെ വന്നതോടെ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സഭാ ധ്യക്ഷൻ അറിയിച്ചു

പലകാരണ ങ്ങൾകൊണ്ടും വിദേശത്ത് തുടരാൻ കഴിയാത്തവരെയാണ് ഗവൺമെന്റ് തിരികെ നാട്ടിലെത്തിച്ചതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർപ്പീസ് പുനരാരംഭിക്കുന്നത് അന്തിമമായി വിലയിരുത്താൻ എയർഇന്ത്യ സംഘം ഇന്ന് വിമാനത്താവളത്തിലെത്തും എയർഇന്ത്യാ ഓപ്പ റേഷൻ വിഭാഗത്തിലെ പി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് സന്ദർശനം നടത്തുന്നത് വിമാനങ്ങളുടെ സുരക്ഷ വിലയിരുത്തലാണ് ഇന്ന് നടത്തുക കേരള ഗ്രാമീണബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആരംഭിച്ച സമരം മൂന്നാം ദിവസവും തുടരുന്നു സമരത്തെ തുടർന്ന് മിക്ക ബ്രാഞ്ചുകളുടേയും പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്

കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും ഓഫീസേഴ്സ് യൂണിയനും സംയുക്തമായാണ് സമരം നടത്തുന്നത് കൊച്ചി ബ്യൂട്ടിപാർലർ വെടിവെപ്പ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊലീസ് സംരക്ഷണമാവശ്യപ്പെട്ട് ഉടമയും നടിയുമായ ലീന മരിയ പോൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ലീനയുടെ പേരിൽ നിലവിലുളള കേസുകളുടെ വിവരവും പൊലീസ് ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കും മുംബൈ അധോലോക് കുറ്റവാളി രവി പിള്ളയുടെ പേരിൽ തനിക്ക് ഭീഷണി സന്ദേശം വന്നിരുന്നുവെന്ന് ലീന പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു

ഇന്ന് വിധി പ്രഖ്യാപിക്കുമെന്നാ യിരുന്നു ഇന്നലെ അറിയിച്ചത്

സോളാർ വിഷയത്തിൽ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ വ്യാജ കത്ത് നിർമ്മിച്ചെന്ന കേസിൽ വിധി ഇന്നുണ്ടാ കും ബിജുരാധാകൃഷ്ണൻ പ്രതിയായ കേസ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണി ക്കുന്നത് ആലപ്പുഴ നൂറനാട് കുടശനാട് എൻഎസ്എസ് കരയോഗ മന്ദിരത്തിലെയും എൻഎസ്എസ് ഹൈസ്കൂളിലെയും കൊടിമരത്തിൽ കരിങ്കൊടി ഉയർത്തിയ സംഭവത്തിൽ രണ്ട് പേർ പിടിയിൽ എൻഎസ്എസ് കുടശനാട് കര്യോഗം അംഗങ്ങളായ വിക്രമൻ നായർ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരും ആർഎസ്എസ് പ്രവർത്തകരാണ് കഴിഞ്ഞ മാസമായിരുന്നു സംഭവം കരിങ്കൊടിക്ക് താഴെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പേരിൽ റീത്തും സ്ഥാപിച്ചിരുന്നു സംസ്ഥാനത്ത് ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷിക്കുന്നതിന് സമ യ പ രിധി അവസാനിച്ചു

കോഴിക്കോട് ഫറോക്ക് ഐ ഒ സി ടാങ്കർ തൊഴിലാളികളുടെ സമരം തുടരുന്നു സമരം ഒത്തുതീർക്കുന്നതിന് ഇന്നലെ കോഴി ക്കോട് എ ഡി എം വിളിച്ചു ചേർത്ത തൊഴിലാളികളുടെ ഐ ഒ സി അധികൃതരുടെയും ഒത്തുതീർപ്പ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു സമരം തുടർന്നാൽ മലബാർ മേഖലയിൽ ഇന്ധന നീക്കം തടസ്സപ്പെടുമെന്നാണ് റിപ്പോർട്ട് എട്ടാമത് സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൌശല മേളക്ക് ഇന്ന് വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ തുടക്കമാകും വൈകീട്ട് ആറരയ്ക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്യും

ഗസൽ ഗാനമേള മാജിക് പ്രദർശനം കോമഡി ഉത്സവം ഇശൽ നൈറ്റ് തുടങ്ങിയ പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കും

പടിഞ്ഞാറേത്തറ മാഞ്ഞാർ സ്വദേശി ഹസീനയാണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റു ചുരം ഒൻപതാം വളവിൽ വ്യൂ പോയിന്റിന് സമീപമായിരുന്നു അപകടം ആലപ്പുഴ ഹരിപ്പാട്ട് ദേശീയപാതയിൽ ടെമ്പോ ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു

സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളാ ടീമിന്റെ കോച്ചായി മുൻതാരം വി പി ഷാജിയെ നിയമിച്ചു

നിലവിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻമാരാണ് കേരളം

ഇന്നലെ ചണ്ഡീഗഢിൽ കൊൽക്കത്താ മോഹൻ ബഗാൻ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മിനർവ പഞ്ചാ ബിനെ തോൽപ്പിച്ചു